മരണം ഹൃദയാഘാതത്തെ തുടർന്ന്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സമ്മേളനത്തിൽ പങ്കെടുക്കും

ത തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഭീതിവിതച്ച് നിവാർ ചുഴലിക്കാറ്റ് തീരം കടന്നു വൻ നാശനഷ്ടമുണ്ടായെന്ന് ആദ്യ റിപ്പോർട്ടുകൾ

കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങും

ഹൃദയാഘാതമാണ് മരണകാരണം തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് അടുത്തയിടെ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു

അർജന്റീനയെ കിരീടത്തിലെത്തിച്ചത് മറഡോണയുടെ ഒറ്റയാൾ പോരാട്ടമാണെന്ന് ഫുട്ബോൾ പലോകം വിലയിരുത്തുന്നു

ലോകത്തെ ഏറ്റവും ജനപ്രിയനായ ഫുട്ബോളർ എന്ന കുപ്പായമാണ് മറഡോണയുടേത് ക്സബ്ബ് ഫുട്ബോളിൽ ബൊക്കാ ജൂനിയേഴ്സ് ബാർസലോണ നാപ്പോളി സെവില്ല ന്യുവൽസ് ഓൾഡ് ബോയ്സ് ടീമുകൾക്കായി അദ്ദേഹം ബൂട്ടണിഞ്ഞു

ഇന്നലെ ഗുജറാത്തിലെ കവാഡിയയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് രണ്ട് ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്

വെങ്കയ്യ നായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഉൾപ്പടെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

രമേ പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ ആഗോള സംഗമവും പ്രദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും

വിവിധ കമ്പനികൾ ഊർജ്ജ മേഖലയിൽ കൈവരിച്ച സാങ്കേതിക വികസന നേട്ടങ്ങൾ സംഗമത്തിൽ പ്രദർശിപ്പിക്കും ദേഴ ഇന്ന് ആറാമത് ഭരണഘടനാ ദിനം

ദേശീയ നിയമ ദിനമായും ഇന്ന് ആചരിക്കുന്നു രുര തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഭീതി വിതച്ച് നിവാർ ചുഴലിക്കാറ്റ് തീരം കടന്നു

പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ചെന്നൈയടക്കം തീര ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് കടൽക്ഷോഭവും രൂക്ഷമാണ് പല നദികളും കരകവിഞ്ഞു

ചുഴലി കൊടുങ്കാറ്റിനെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ വീണും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നും അപകടങ്ങൾ ഉണ്ടായി

ദേശീയ ദുരന്ത നിവാരണ സേനയും സുരക്ഷാ സേനയും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി ട്രെയിൻ സർവ്വീസുകളും വിമാന സർവ്വീസുകളും ഇന്നലെ തന്നെ നിർത്തിവെച്ചിരുന്നു

പനാജിയിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് സീസണിലെ ആദ്യ ജയം മുംബൈ സിറ്റി സ്വന്തമാക്കിയത് ഇന്ന് വൈകീട്ട് ഏഴരക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

കേന്ദ്ര ഗവൺമെൻറിൻെറ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമെന്ന് ആരോപിച്ചാണ് ബിഎംഎസ് ഒഴികെ സംഘടനകൾ പണിമുടക്ക് ആഹ്വാനം നൽകിയത് രുഭ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ദേശീയ പണിമുടക്ക് ദിവസമായ ഇന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന സ്റ്റിക്കർ പതിക്കേണ്ടതാണ് രും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോളിങ്ങ് സ്റ്റേഷനുകളിൽ നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാർക്ക് നിയമന ഉത്തരവ് ഇന്ന് മുതൽ വിതരണം ചെയ്യും സ്ഥാപന മേധാവികൾ നിയമന ഉത്തരവ് ഇ ഡ്രോപ്പ് സോഫ്റ്റ് വെയറിൽ നിന്ന് നേരിട്ട് ഡൌൺലോഡ് ചെയ്യേണ്ടതാണ് രുഭ സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരത്തിൽ ബിജെപിയും കോൺഗ്രസും കൈകോർത്തിരിക്കുകയാണെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി എൽഡിഎഫിന്റെ വികസന സംരക്ഷണ ദിനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയരാഘവൻ രുര സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ഇതിനെതിരെ ശക്തമായ സൈബർ നിയമം വേണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

ഇടുക്കി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ മെഗാ അദാലത്തിൽ പങ്കെടുക്കുകയായിരിന്നു അവർ രുര കേരള കേന്ദ്ര സർവ്വകലാശാലയുടെ തിരുവല്ല നിയമപഠന വിഭാഗത്തിന്റെ ഭരണഘടനാ ദിനാഘോഷ പരിപാടികൾ രാവിലെ വൈസ് ചാൻസലർ പ്രൊഫ എച്ച് വെങ്കിടേശ്വരലു ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും ഗുജറാത്ത് നിയമ സർവ്വകലാശാല വൈസ് ചാൻസലർ പ്രൊഫ

ശാന്തകുമാർ സ്കൂൾ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് ഡീൻ ഡോ ജയപ്രസാദ് തുടങ്ങിയവർ ഭരണഘടനാ ദിന പ്രഭാഷണം നടത്തും ചടങ്ങിൽ നിയമപഠന വിഭാഗം മേധാവി ഡോ ജയശങ്കർ

ഐ അധ്യക്ഷനായിരിക്കും രുര ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ എം സി കമറുദ്ദീൻ എംഎൽഎയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ജയിലിൽ കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്നാണ് നടപടി